ചില പൊതുമേഖലാ ബാങ്കുകൾ അടച്ചു പൂട്ടുന്നുവെന്ന പ്രചരണം തെറ്റെന്ന് ധനമന്ത്രാലയം

സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഉള്ളി ലഭ്യമാക്കുമെന്നും മന്ത്രി

മഞ്ചേശ്വരത്ത് എം

കമറുദ്ദീൻ യുഡിഎഫ് സ്ഥാനാർത്ഥി

പരിഷ്ക്കരണവും വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയിലാണുള്ളത് അതിവേഗം വളരുന്ന സാമ്പത്തിക മേഖലയുടെ ആനുകൂല്യങ്ങൾ വ്യവസായ ലോകം പ്രയോജനപ്പെടുത്തണമെന്ന് ചെയ്തു അദ്ദേഹം ആഹ്വാനം ഊർജ്ജമേഖലയ്ക്കും നല്കുന്ന വിനോദസഞ്ചാരത്തിനും ഇന്ത്യ പ്രാധാന്യം നിക്ഷേപകർക്ക് അനുകൂലമാണെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂയോർക്കിലെ സമ്മേളനം തുടരുകയാണ്

ഇസ്താമിക ഭീകരതയെ വേരോടെ പിഴുതു മാറ്റുവാൻ മോദിക്ക് കഴിയുമെന്നും ട്രംപ് പ്ലറഞ്ഞു ന്യൂയോർക്കിൽ ഐകൃരാഷ്ട്രസഭ സമ്മേളനത്തിനിടെ ഇരുന്നേതാക്കളും ഭീകരതയെ സംബന്ധിച്ച് ദീർഘമായ ചർച്ച നടിത്തി

ഇന്ത്യയും പാകിസ്ഥാനും കശ്മീർ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ശ്രീ

കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുനേതാക്കളും സംയുക്ത വാർത്താസമ്മേളനം നടത്തി സമ്മേളനത്തോടനുബന്ധിച്ച് സമുദ്രത്തിലെ ചെറുദ്ധീപുകളിലെ വികസന സൂമിതി നേതാക്കളുമായി ശ്രീ

ബിൽ ആന്റ് മെലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേഷൻ സ്വച്ഛ്ഭാരത് മിഷൻ പ്രവർത്തന നേട്ടങ്ങൾക്ക് നൽകിയ ഗ്ലോബൽ ഗോൾ കീപ്പർ അവാർഡ് ശ്രീ

ഇന്ത്യയിലെ ജനങ്ങൾ സ്വച്ഛ്ഭാരത് മിഷൻ വിജയിപ്പിക്കുന്നതിന് നൽകിയ സംഭാവനകൾക്ക് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു ന്യൂസ് ഡസക് ആകാശവാണി

സമൂഹമാധ്യമങ്ങളിലൂടെ ഇത്തരം ചില വിവരങ്ങൾ പ്രചരിക്കുന്നതായി മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്

പൊതുമേഖലാ ബാങ്കുകളെ ശക്തിപ്പെടുത്താനും കൂടുതൽ പണം പൊതുജനങ്ങളിലെത്തിക്കാനുമാണ് റിസർവ്വ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശ്രമം

ആവശ്യത്തിനനുസരിച്ചുള്ള ഉള്ളി സംഭരിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഉള്ളി ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

ഇതേ തുടർന്ന് പഞ്ചാബിലെ ഇന്ത്യൻ വ്യോമസേനാ താവളങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി പത്താൻകോട്ട് വ്യോമസേനാ താവളത്തിൽ ഇതു സംബന്ധിച്ച് നേരത്തേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും പ്രദേശങ്കത്ത സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് മുതിർന്ന് അസ്നിക ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തിയതായും ഔദ്യോഗിക വക്താവ് അറിയിച്ചു സുരക്ഷാ ഭീഷണി കണക്ക്റിലെടുത്ത് ബസ്സ്റ്റാന്റ് റെയിൽവേ സ്റ്റേഷൻ അമൃത്സർ പരിഞാൾകോട്ട് ഉൾപ്പെടെയുള്ള പൊതു സ്ഥലങ്ങൾ എന്നിവിട്ടങ്ങളിൽ അതീവ ജാഗ്രത പുലർത്താൻ പഞ്ചാബ് പൊലീസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നല്കി

തീര സംരക്ഷണ സേനയുടെ പുതിയ നിരീക്ഷണ കപ്പലായ വരാഹ അദ്ദേഹം ചെന്നൈ തുറമുഖത്ത് കമ്മീഷൻ ചെയ്തു

കേരളം മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ നേരിട്ട പ്രളയക്കെടുതികളിൽ തീരദേശ സേന നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഐഎം ജില്ലാ സെക്രട്ടറിയറ്റും കോൺഗ്രസ് തിരഞ്ഞെടുപ്പു സമിതിയും തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കും

വോട്ടു രേഖപ്പെടുത്തിയ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന പാലാ കാർമൽ സ്കൂളിലാണ് വോട്ടെണ്ണൽ നടക്കുക

മറ്റന്നാൾ രാവിലെ എട്ടു മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും

തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ചർച്ച നടത്തി

കളളപ്പണം വെളിപ്പിക്കലുമായി ബന്ധപ്പെട്ട് മുതിർ രാഷ്ട്രീയ പ്രവർത്തകനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ബി ജെ പി നേതൃത്വം വഹിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന് യാതൊരു പങ്കുമില്ലെന്ന് ശ്രീ ഫഡ്നാവിസ് പറഞ്ഞു മുബൈയിലെ വാഷിയിൽ ശിവസേനാ പ്രസിഡന്റ് ഉദ്ദവ് താക്കറുടെ സാന്നിധ്യത്തിൽ നടന്നു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മാധ്യമ പ്രവർത്തകരോട്ട് സ്റ്റ്സാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ശ്രീ ൃശ്രത് ് പവാറിനെതിരെ എടുത്ത കേസ് രാഷ്ട്രീയ പ്രേരിതമാര്ണിന്ന് കാണിച്ച് മഹാരാഷ്ട്രയിലെ വിവിധ സ്ഥലങ്ങളിൽ നാഷണൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ പ്രതിഷേക്ര പ്രകടനങ്ങൾ നടത്തി

നിലവിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ശിവകുമാറിന് എന്തെങ്കിലും ഇളവ് നല്കാൻ പ്രത്യേക ജഡ്ജി അജയ്കുമാർ വിസമ്മതിച്ചു

ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രി ഡോ

ചൈനയുടേയും മ്യാൻമാറിന്റേയും വിദേശ കാര്യ മന്ത്രിമാരുമായി ഇക്കാര്യം ചർച്ച ചെയ്തതായി ഡോ

ഖാദിയുടെ പാരമ്പര്യ സവിശേഷതകൾ നിലനിർത്തി കൊണ്ടുതന്നെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതികളിൽ ഖാദി വസ്ത്രങ്ങൾ നിർമ്മിക്കാനാകണം ന്യൂഡൽഹിയിൽ ദേശീയ ശിൽപ്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയും കെ എസ്

വൈദ്യുതി കുടിവെള്ള വിതരണം നാളെയും മറ്റെന്നാളുമായി വിച്ഛേദിക്കുമെന്ന് നോട്ടീസിൽ പറയുന്നു

ഫ്ളാറ്റ് പൊളിക്കാനുള്ള നടപടികളുടെ ചുമ്തലയുള്ള ഫോർട്ട് കൊച്ചി സബ്കളക്ടർ സ്നേഹിൽ കുമാറിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ശക്തമാക്കാനുള്ള തീരൂമാനത്തിലാണ് ഫ്ളാറ്റ് ഉടമകൾ

അപകീർത്തികരമായ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പണം തട്ടാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തത്

പീഡന പരാതിയിൽ സ്വാമി ചിന്മയാനന്ദിനെ നേരത്തേ അറസ്റ്റു ചെയ്തിരുന്നു

സിന്ധു സൈന നെഹ്വാൾ ബി

അതേസമയം ഇന്ത്യയുടെ പി

പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ ചൈനീസ് തായ്പേയ് താരം ലു ചിയ ഹുങിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കശ്യപ് അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചത്